യുടെ തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക ഇന്ന് ന് പുറത്തിറക്കും ഒരുതവണ കൂടി മോദി ഗവൺമെന്റ് എന്ന പ്രചരണ മുദ്രാവാകൃം മുതിർന്ന ബി ജെ

നേതാവ് അരുൺ ജയ്റ്റ്ലി പുറത്തിറക്കി

കൊൽക്കത്ത മുൻ പൊലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന സി ബി ഐ

തുടർച്ചയായ ആറാം തോൽവി രാജസ്ഥാനെതിരെ അനായാസ ജയം നേടി കൊൽക്കത്ത പോയിന്റ് നിലയിൽ ഒന്നാമത്

പരസ്യ പ്രചരണം നാളെ അവസാനിക്കും

ആന്ധ്രപ്രദേശ് അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം ആന്റമാൻ നിക്കോബാർ ലക്ഷദ്വീപ് തെലങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പരസ്യ പ്രചരണത്തിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കേ സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പ്രചരണ പരിപാടികളിലേക്ക് കടന്നു ദേശീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തത് അണികൾക്ക് ആവേശം പകർന്നു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇന്നലെ വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംബന്ധിച്ചു ഉത്തർപ്രദേശിൽ ബി

സമാജ്വാദി പാർട്ടി രാഷ്ട്രീയ ലോക്ദൾ എന്നീ കക്ഷികൾ ഇന്നലെ സംയുക്ത റാലി സംഘടിപ്പിച്ചു

മുതിർന്ന ബി ജെ

നേതാവ് രാജ്നാഥ് സിംഗ് സിപിഐ നേതാവ് സുധാകർ റെഡ്സി തമിഴ്നാട് മുഖ്യമന്ത്രിയും എ

ജെ

യുടെ പ്രചരണ മുദ്രാവാക്യം മുതിർന്ന ബി ജെ

നേതാവും ധനമന്ത്രിയുമായ അരുൺ ജയ്റ്റ്ലി പുറത്തിറക്കി ഒരിൽക്കൂടി മോദി ഗവൺമെന്റ് എന്ന് അർത്ഥം വരുന്ന ഫിർ ഏക് ബാർ മോദി സർക്കാർ എന്നതാണ് മുദ്രാവ്ലാകൃം പാർട്ടി പ്രചരണത്തിന്റെ ആദ്യ പ്രമേയം തൊഴിഉലിട്ടുക്കുന്ന ഗവൺമെന്റ് എന്നതും രണ്ടാമത്തേത് സത്യസന്ധ്യമുട്ടിയിഗ്വൺമെന്റ് എന്നതും മൂന്നാമത്തേത് വലിയ തീരുമാനങ്ങൾ ഏടുക്കുന്ന ഗവൺമെന്റ് എന്നതുമായിരിക്കുമെന്ന് ശ്രീ

ഇവ എല്ലാകൂടി ചേർന്ന പ്രധാന ൃപ്മേയ്മാണ് ഒരിക്കൽകൂടി മോദി ഗവൺമെന്റ് എന്നതെന്നുംആദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ എൻ

ഗവൺമെന്റ് നടപ്പിലാക്കിയ സത്യസന്ധമായ ഭരണീക്ട്സ്പ്രധാന തീരുമാനമെടുക്കാനുള്ള കഴിവ് സ്ത്രീ ശാക്തീകർണം മറ്റ് ക്ഷേമ പദ്ധതികൾ എന്നിവ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളുടെ ഭാഗമാകുമെന്നും ശ്രീ ജയ്റ്റ്ലി പറഞ്ഞു

ജെ പി തെരഞ്ഞെടുപ്പ് പ്രകടനപത്രിക ഇന്ന് പുറത്തിറക്കും

ജെ

സങ്കല്പ് പത്ര എന്ന് വിശേഷിപ്പിക്കുന്ന പ്രകടനപത്രിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെയും സാന്നിദ്ധ്യത്തിലാണ് പുറത്തിറക്കുക

ജെ പിയുടെ പാർലമെന്ററി ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും

ജെ

ജെ

അധ്യക്ഷൻ അമിത്ഷായും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്രപ്രധാനും സന്നിഹിതരായിരുന്നു

ആദായ നികുതി വിഭാഗം സ്വീകരിക്കുന്ന നടപടികൾ നിഷ്പക്ഷവും വിവേചനമില്ലാത്തതുമാകണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിഷൻ നിർദ്ദേശം നൽകി മാതൃകാ പെരുമാറ്റചട്ടം ് നിലവിലിരിക്കെ അനധികൃതമായി പണം തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപെട്ടാൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിക്കണമെന്ന് കമ്മീഷൻ കേന്ദ്ര റവന്യു സെക്രട്ടറിക്കയച്ച കത്തിൽ വ്യക്തമാക്കി പണം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നതാണ് സ്വതന്ത്രവും സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തടസമാകുന്നതെന്നും കമ്മിഷൻ ്വൃക്തമാക്കി

ഛത്തീസ്ഗഡിൽ ദിവ്യാംഗർക്കായി പോളീഹ് ബൂത്തിൽ എല്ലാ സൌകര്യങ്ങളും സജ്ജമാക്കി

എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ദിവ്യാംഗരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന ഓരോ ബൂത്തുകൾ വീതമാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ എല്ലാ ബൂത്തുകളും വനിതാ സൌഹൃദമാക്കിയിട്ടുണ്ട്

ഇതോടെ മത്സര രഗംത്തുള്ള സ്ഥാനാർഥികളുടെ അന്തിമ ചിത്രമാകും

അതിനിടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമായി വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് എത്തുന്നതോടെ പ്രചാരണത്തിന് ചൂടേറും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രകടന പരിപാടികളിൽ പങ്കെടുക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും ബിജെപി സംസ്ഥാന നേതാക്കളും തിരക്കേറിയ പ്രഷ്ടാരണ പരിപാടികളിലാണ്

ഇദ്ദേഹത്തിന്റെ അറസ്റ്റിന് ഫെബ്രുവരി അഞ്ചിന് സുപ്രീം കോടതി അനുവദിച്ച സ്റ്റേയും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സിബിഐ കോടതിയെ സമീപിച്ചത് ചിട്ടിഫണ്ട് തട്ടിപ്പു കേസുകളുടെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ രാജീവ് കുമാറിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന് സിബിഐ സമർപ്പിച്ച ഹർജി വൃക്തമാക്കുന്നു സിബിഐ അന്വേഷണത്തിന് തടസം നിൽക്കരുതെന്ന് കരുതുന്ന നേരത്തെയുള്ള കോടതിയുടെ നിർദ്ദേശം കർശനമായി പാലിക്കാൻ പശ്ചിമബംഗാൾ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകണമെന്ന് സിബിഐ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്

പാകിസ്ഥാൻ വിദേശമന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരവും അസംബന്ധവുമാണെന്ന് വിദേശകാര്യമന്ത്രാലയം വൃക്തമാക്കി

പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ ഭീകര സംഘടനകൾക്ക് നുഴഞ്ഞുകയറി ആക്രമണം നടത്താനുള്ള സാഹചര്യമൊരുക്കാനാണ് പാകിസ്ഥാൻ ഇത്തരം പ്രസ്താവനകളിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടന്നതെന്നും ഇന്ത്യ വൃക്തമാക്കി നുഴഞ്ഞുകയറി ആക്രമണം നടത്തുന്നതിന്റെ ഉത്തരവാദിതത്തിൽ നിന്നും പാകിസ്ഥാന് ഒഴിഞ്ഞു മാറാനാവില്ല ഭീകരവാദം തുടച്ചുമാറ്റാനുള്ള യുക്തിഭദ്രമായ നടപടികളാണ് പാകിസ്ഥാൻ എടുക്കേണ്ടത് അതിനു പകരം ഇത്തരം പ്രസ്താവന വഴി കണ്ണടച്ച് ഇരുട്ടുണ്ടാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രാല്ലയ്ക് പ്രസ്താവനയിൽ പറഞ്ഞു ഭീകരാക്രമണങ്ങൾ ഇല്ലാതൃജ്ക്ക്ട്ൻ നയപരവും ക്രിയാത്മകവുമായ നടപടികളാണ് പ്പാക്കിസ്ഥാൻ സ്വീകരിക്കേണ്ടത് അതിർത്തിക്കപുറത്തു നിന്നുള്ള ഏത്രതരം ഭീകരാക്രമണവും പ്രതിരോധിക്കാൻ ഇന്ത്യയ്ക്ക് ്രഅവ്കാശമുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി

ക്രിക്കറ്റിൽ ബാഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ആറാം തോൽവി ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാനെതിരെ അനായാസ ജയം നേടി കൊൽക്കത്ത പോയിന്റ് നിലയിൽ ഒന്നാമതെത്തി

ആദ്യ ജയം തേടി സ്വന്തം തട്ടകമായ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മത്സരത്തിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സിനെ നാല് വിക്കറ്റിനാണ് ഡൽഹി ക്യാപ്പിറ്റൽസ് തോൽപിച്ചത്

അർദ്ധ സെഞ്ചറി നേടിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഡൽഹിയുടെ വിജയം അനായാസമാക്കി മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി

ഇന്ന് മൊഹാലിയിൽ നടക്കുന്ന മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സമധാന പ്രവർത്തനങ്ങൾക്കായി ട്രിപോളിയിൽ നിയോഗിക്കപ്പെട്ടവരാണ് ജവാൻമാർ കഴിഞ്ഞ ദിവസമാണ് അപ്രതീക്ഷിതമായ വിമത നേതാവ് ഖലീഫ ഹഫ്തരിന്റെ നേതൃത്വത്തിൽ ട്രിപോളി പിടിക്കാനായി വ്യോമാക്രമണം തുടങ്ങിയത്

നാളെയാണ് ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വിവരങ്ങൾ ചോർത്തിയെന്നാണ് ഹാക്കർമാർ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത് പക്ഷേ ഇതിന് തെളിവുകൾ ഒന്നും ഇല്ലെന്നും ഇസ്രയേൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു